കാർഷിക മേഖലയിലെ സൂസ്ഥിക വികസനം എന്നതാണ് ഇത്തവണത്തെ ഉച്ചുകോടിയുടെ പ്രമേയം ഇന്നലെ ബ്യൂണസ് ഐറിസിൽ ശ്രീ നരേന്ദ്രമോദി സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തി സാമ്പത്തിക സാംസ്കാരിക ഊർജ വികസന വിഷയങ്ങളിൽ രാജ്യങ്ങൾക്കിടയിലുള്ള ഉഭയകക്ഷി സഖ്യത്തെ കുറിച്ചാണ് ഇരു ഭരണാധികാരികളും ചർച്ച നടത്തിയത്

ശ്രീ നരേന്ദ്രമോദി പിന്നീട് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സുമായും കൂടിക്കാഴ്ച നടത്തി രണ്ടു മാസത്തിനിടെ ഗുട്ടേഴ്സുമായി മോദി നടത്തുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത്

ബ്യൂണസ് ഐറിസിൽ രാവിലെ സംഘടിപ്പിച്ച യോഗ സമാധാനത്തിന് എന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വൃക്തിക്കും സമൂഹത്തിനും ലോകത്തിനും സമാധാനം നിലനിർത്താൻ യോഗ ഫലപ്രദമാണെന്നും ആരോഗ്യവും സമാധാനവും സമ്മാനമാണ് യോഗയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ബി

ഗുപ്തക്ക് പുറമേ വികാസ് മെറ്റൽസ് അന്റ് പവർ ലിമിറ്റഡിന്റെ മുൻ ജോയിന്റ് സെക്രട്ടറി കെ എസ് ക്രോഫ കൽക്കരി മന്ത്രാലയ ഡയറക്ടർ കെ സി സംമ്രിയ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ വികാസ് പട്ട്നി ഉദ്യോഗസ്ഥൻ ആനന്ദ് മാലിക് എന്നിവരും കുറ്റം ചെയ്തതായി കോടതി വിലയിരുത്തി

ഗാന്ധി ഇന്ന് എന്ന വിഷയത്തിൽ നടന്ന യോഗത്തിൽ നേപ്പാളിലേയും ഇന്തൃയിലേയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു സമകാലീന ലോകത്ത് ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രസക്തിയെകുറിച്ച് നേതാക്കൾ സംസാരിച്ചു

ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നാവിക കപ്പലുകളുടെ ഒരാഴ്ച നീളുന്ന സന്ദർശനം രക്ഷാപ്രവർത്തനം മലീനികരണ നിയന്ത്രണം കാണാതായ ബോട്ടുകളുടെ തിരച്ചിൽ തുട്ടങ്ങിയവയിൽ പ്രത്യേക പരിശീലനവും ഇന്ത്യൻ നാവിക സേന ന്യൽകും

സംസ്ഥാന തലസ്ഥാനമായ റാഞ്ചിക്ക് സമീപത്തെ ഗലേഗാവിൽ നടക്കുന്ന ദിദിന ഉച്ചകോടിയിലാണ് ഈ ധാരണ ഉണ്ടായത്

ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷനിലെ മുതിർന്ന അംഗം പ്രൊഫസർ പ്രദീപ്കുമാർ ജോഷി സത്യവാചകം ചൊല്ലിക്കൊടുത്തു

പ്രധാൻമന്ത്രി സഹജ് ബിജലി ഹർ ഘർ യോജന അഥവാ സൌഭാഗ്യ പദ്ധതി പ്രകാരമാണ് ഈ നേട്ടം കൈവരിക്കാനായത് മധ്യപ്രദേശ് ത്രിപുര ബീഹാർ ജമ്മുകാശ്മീർ മിസോറാം സിക്കിം തെലങ്കാന പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് വൈദ്യുതീകരണ ലക്ഷ്യം നേടിയത്

ജെ പിയും കോൺഗ്രസും അടക്കമുള്ള ദേശീയ പാർട്ടികളും പ്രാദേശിക കക്ഷികളും വോട്ടർമാരുടെ മനസ് കീഴടക്കുന്നതിനുള്ള വൃത്യസ്ഥമാർന്ന പരിപാടികളാണ് നടത്തുന്നത്

കവലകൾതോറുമുള്ള യോഗങ്ങൾക്ക് പുറമെ റോഡ്ഷോകളും റാലികളും നടത്തുന്നതിനായി രാ്ഷ്ട്രീയപാർട്ടികൾ മൽസരിക്കുകയാണ് തെലങ്കാനയിലെ വോട്ടർമാരുടെ മനസ് കീഴടക്കുന്ന വാഗ്ദാനമാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രകടപത്രികയിലുള്ളത് രണ്ട് ലക്ഷം വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതി തള്ളുമെന്നും ബിരുദ വിദ്യാർത്ഥികൾക്ക് സൌജന്യലാപ് ടോപ്പുകൾ വിതരണം ചെയ്യുമെന്നും ബി ജെ

മുതിർന്ന ബി ജെ

കോൺഗ്രസ് നേതാക്കളായ ഗുലാംനബി ആസാദും മല്ലികാർജുൻ ഗാർഗെയും വിവിധ സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങളിൽ സംസാരിക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

കെ ആസ്ഥാനമായ ഡീപൈ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ നിലവാരം കുറഞ്ഞ എ

ഇടുപ്പിലെ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്കായാണ് എ

പെട്രോൾ വില തുടർച്ചയായി കുറഞ്ഞ് കഴിച്ച് ഏപ്രിൽ മുതലുണ്ടായ വിലക്കയറ്റത്തിന് മുൻപുള്ള നിലവാർത്ത്ൂല്ലേക്ക് വിലയെത്തിയിട്ടുണ്ട്

സ്റ്റാർട്ട് അപ്പ് സംരംഭങ്ങൾ വഴി തൊഴിൽ മേഖലയും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു

തുടർച്ചയായി മൂന്നാം ദിവസമാണ് പ്രതിപക്ഷം ഇതേ വിഷയം ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ശബരിമലയിൽ കൃഷ്ണൂടിസ്ഥാന സൌകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും ൃദ്ധ്തിപ്പക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി എന്നാൽ ഒരേ വിഷയം ചർച്ച ചെയ്യാൻ ആകില്ലെന്ന് സ്പീക്കർ പി

സോളാർ വിവാദത്തിൽപ്പ്പക്ഷ ആറ് അടിയന്തര പ്രമേയങ്ങൾ ഒരേ വിഷയം ചർച്ച ചെയ്തീരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി